ബാങ്ക് വായ്പകളിൽ നൽകിയ ആശ്വാസ നടപടികൾ വിലയിരു ന് ത്തുന്നത് സഹായിക്കാൻ കേന്ദ്രം മൂന്നംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചു

നീട്ടിവയ്ക്കാനും നിയമസഭാ ഉപതെരെഞ്ഞെടുപ്പ് മാറ്റാനും ആവശ്യപ്പെടാൻ സർവകക്ഷി യോഗത്തിൽ ധാരണയായതായി മുഖ്യമന്ത്രി ്പിണറായി വിജയൻ

വിവിധ മേഖലകളിലൂള്ള് പ്പിദ്ഗ്ധരുടെ കഴിഞ്ഞ നാലഞ്ചു വർഷമായുള്ള കഠിന പരിശ്രമത്തിന്റെ ഭാഗമാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഇതൊരു തുടക്കം മാത്രമാണ് പുതിയ നയം ഫലപ്രദമായി നടപ്പാക്കുക ് എന്നതാണ് അടുത്ത ലക്ഷ്യം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞുപ്പിട്ടസ്കൂൾ ഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾ പുറം ലോകത്തെ അ്റിയാൻ തുടങ്ങുന്നത്

അഭിരുചികൾ മനസ്സിലാക്കി പഠിക്കാൻ പുതിയ വിദ്യാഭ്യാസ നയത്തിന് അവസരമൊരുക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

അതിർത്തി സംബന്ധിച്ച അഞ്ച് വിഷയങ്ങളിൽ ഇരുരാജ്യങ്ങളും പരസ്പര ധാരണയോടെ പ്രവർത്തിക്കും വോയ്സ് മോസ്കോയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങ് യി യും ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ച യിലാണ് ധാരണയായത് അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കണമെന്ന് ഇരുനേതാക്കളും അഭിപ്രായമുന്നയിച്ചു അതിർത്തിയിൽ നടന്നുവരുന്ന സേനാ തല സംഭാഷണങ്ങൾ തുടരും

അതിർത്തിയിൽ സമാധാനവും ശാന്തതും സ്ഥിരമായി പാലിക്കാൻ ഇരുനേതാക്കളും നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി വിഷയം വഷളാക്കുന്ന തരത്തിലുള്ള യാതൊരു നടപടിയും സ്വീകരിക്കില്ലെന്നും ഇരുനേതാക്കളും പറഞ്ഞു അതിർത്തിയിൽ നിലവിലെ സ്ഥിതി ഇരുരാജ്യങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്നതല്ലെന്നും അതിനാൽ അതിർത്തിയിൽ നിന്നും വേഗത്തിൽ പിന്മാറണമെന്നും ഇരുനേതാക്കളും തീരുമാനിച്ചു ഇന്ത്യ ചൈന ബന്ധം ഉൌഷ്മളമാക്കാൻ പൊതുവായി എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ഇരുവിഭാഗ്ലവും മാർഗ്ഗനിർദ്ദേശം സ്വീകരിക്കണമെന്നും അഭിപ്രായ വ്യത്യാസ്ങ്ങൾ തർക്കങ്ങളിലേക്ക് വഴിമാറാൻ അനുവദിക്കരുതെന്നും ധൃാത്ത്ണിയായി

ഭീകരതയെ നേരിടാനുള്ള ഇന്തൃ യു എസ് സംയുക്ത് കർമസമിതിയുടെ യോഗത്തിന് ശേഷമാണ് ഇരുരാജ്യ ങ്ങളും സംയുക്ത പ്രസ്താവന ഇറക്കിയത്

അതിർത്തി കടന്നുള്ള എല്ലാതരത്തി ലുമുള്ള ഭീകരപ്രവർത്തനത്തെ ഇരുരാജ്യങ്ങളും അപലപിച്ചു

കേവലം നാലു മാസം മാത്രം പ്രവർത്തന കാലാവധി ലഭിക്കുമെന്നിരിക്കേ ഉപ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ലെന്ന നിലപാടാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പൊതുവേ സ്വീക്രിച്ചത്

കോവിഡ് പശ്ചാത്തലത്തിൽ നൽകിയ മൊറട്ടോറിയവും പലിശ എഴുതിത്തള്ളലും ദേശീയ സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ പ്രത്യാഷ്ട്രാതം മുൻ സി

ജി രാജീവ് മഹർഷി അധ്യക്ഷനായ ്സ്മിത്രി് വിലയിരുത്തും

കോവിഡ് പ്രതിസന്ധി കാലത്താണ് വീടുകളുടെയെല്ലാം നിർമാണം തുടങ്ങിയതും പൂർത്തിയാക്കിയതും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും ചടങ്ങിൽ സംബന്ധിക്കും

ജി പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്

കേരളത്തിൽ കൊവിഡ് സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ മന്ത്രിയാണ് ഇ പി ജയരാജൻ

എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോവിഡ് പരിശോധനാഫലം നെഗറ്റീവ് ആയി

സെമിയിൽ അമേരിക്കയുട്ടെ വില്യംസ് പുറത്തായതോടെയാണിത്

സ്വർണ്ണവില കുറഞ്ഞു

ഇവരെ പ്രയോജനപ്പെടുത്തി വികസനം സാധ്യമാക്കുകയാണ് ഡ്രീം കേരളയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് വിവിധ വികസന സംബന്ധിയായ ആശയങ്ങൾ പൊതുജനങ്ങൾക്ക് വെബ് പോർട്ടലിൽ പങ്ക് വെയ്ക്കാം ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ടുന്നവ വിദഗ്ദ്ധ സമിതിയുടെ പരിശോധന യ്ക്കും പരിഷ്ക്കരണത്തിനും ശേഷം നടപ്പാക്കും